നേതാക്കൾ ന്യൂഡൽഹിയില്ലേക്ക് ബി ജെ

സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് നീാ്ളെ അന്തിമരൂപമാകും

എഫ് തെരഞ്ഞെടുപ്പ ന് കൺവെൻഷന്റുകൾക്ക് ഇന്ന് തുടക്കം

കടകംപള്ളി സുരേന്ദ്രൻ ചൊവ്വാഴ്ച റിസർവ്വ് ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തും

പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് മൊഹാലിയിൽ

ഏഴ് അല്ലെങ്കിൽ എട്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടത്താനാണ് കമ്മീഷൻ തീരുമാനമെടുക്കുക

രേഖപ്പെടുത്തുന്നതിനായിട്ട് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം വോട്ടർ സ്ലിപ്പ് മാത്രം ഹാജരാക്കി വോട്ട് ചെയ്യാൻ ആകില്ല പ്രവാസികൾക്ക് പാസ്പോർട്ട് ഉപയോഗിച്ച് ഓൺലൈനായി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃക്തമാക്കി പ്രവാസികൾ വോട്ടെടുപ്പ് ദിവസം തങ്ങളുടെ പ്രദേശത്തെ നിശ്ചിത പോളിംഗ് ബൂത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തണം ഓൺലൈനിലൂടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്തിയിട്ടി ല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട സംഘം ഇന്ന് ഡൽഹിക്ക് പോകും നാളെയും മറ്റെന്നാളും ഡൽഹിയിൽ ചേരുന്ന സ്ക്രീനിങ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുക

മുതിർന്ന നേതാക്കൾ മൂന്ന് മേഖ് ലുക്ളായി തിരിഞ്ഞ് പ്രവർത്തകർക്കിടയിൽ നടത്തിയ അഭിപ്രാ്യ രൂപീകരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് ഓരോ മണ്ഡലത്തിലും നാല് പേരുകൾ വീതം ഉൾപ്പെട്ട സാധ്യതാ പട്ടിക നേരത്തെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്

ഡി എ ഘടകകക്ഷിയായ ബി ഡി

എസിന്റെ സ്ഥാനാർത്ഥി നിർണയവും നാളെ പൂർത്തിയായേക്കും

തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലും കൺവെൻഷൻ നടക്കും

പൂഞ്ച് ജില്ലയിലെ കൃഷ്ണ ഘാട്ടി സെക്ടറിൽ പുലർച്ചെ നാല് മണിയോടെ പാക്സേന പ്രകോപനം കൂടാതെ വെടി ഉതിർക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം തിരിച്ചും വെടി ഉതിർത്തു

രമേശ് ചെന്നിത്തല സംസ്ഥാന സർവ്വകലാശാലകളുടെ ഭരണം മാർക്സിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സർവ്വകലാശാലകളിലെ രജിസ്ട്രാർ പരീക്ഷാ കൺട്രോളർ ഫൈനാൻസ് ഓഫീസർ തസ്തികളിൽ നിലവിലുള്ളവരെ പിരിച്ചുവിട്ട് കരാർ അടിസ്ഥാനത്തിൽ പകരക്കാരെ നേരിട്ട് നിയമിക്കുന്നതിന് വേണ്ടി സർവ്വകലാശാലാ നിയമം ഭേദഗതി ചെയ്ത് ഓർഡിനൻസിറക്കിയത് മാർക്സിസ്റ്റ് വൽക്കരണം ലക്ഷ്യവച്ചാണെന്ന് ശ്രീ

സർവ്വകലാശാലകളിലെ സുപ്പ്ധാന് തസ്തികകളിൽ പാർട്ടി ബന്ധുക്കൾക്ക് പിൻവാതിൽ നിയമനം നൽകുന്നതിള്ള തന്ത്രമാണ് നിയമഭേദഗതി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി മാവോവാദി വയനാട്ടിലെ പോലീസ് മാവോവാദി ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിലെ വനമേഖലകളിലും അതിർത്തിയിലും പരിശോധന ശക്തമാക്കി

ഉൾക്കാട്ടിലേക്ക് രക്ഷപ്പെട്ട് സംഘാംഗങ്ങളിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ നാട്ടിലെത്താൻ സാധ്യതയുള്ളതിനാൽ മുത്തങ്ങ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിലും നിരീക്ഷണം ശക്തമാക്കി

മണി വാഗ്ദാനങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്ന നയമാണ് സംസ്ഥാന ഗവൺമെന്റ തുടർന്ന് പോരുന്നതെന്ന് മന്ത്രി എം

മണി പറഞ്ഞു ഇടുക്കി ജില്പയിലെ കാഞ്ചിയാർ ഗ്രാമ്പ്പഞ്ചായത്തിൽ ലൈഫ് ഭവനപദ്ധതി പ്രകാരം പൂർത്തീകൃരിച്ചു ്വീടുകളുടെ താക്കോൽ ദാനം നിർവ്വഹിക്കുകയായിരുന്നും അദ്ദേഹം

ഇതിനായി ബസ് സ്റ്റാന്റുകൾ റെയിൽവെ സ്റ്റേഷനുകൾ ട്രാൻസിറ്റ് ബൂത്തുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തുള്ളിമരുണ്ണ് വിതരണത്തിനുള്ള ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ആര്ട്രോഗ്യ സന്നദ്ധ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണത്തിന് നേതൃത്ത്ം നൽകുന്നു കേരള ബാങ്ക് കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അധികൃതരുമായി സഹകരണമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ചൊവ്വാഴ്ച ചർച്ച നടത്തും മുംബൈയിൽ നടക്കുന്ന ചർച്ചയിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ എൻ

ജില്ലാ സഹകരണ ബാങ്കുകളിൽ മലപ്പുറം ഒഴികെ മറ്റെല്ലാ ബാങ്കുകളും കേരള ബാങ്കിൽ ലയിക്കുന്നതിന് സമ്മതം അറിയിച്ചു ഇതോടെ റിസർവ് ബാങ്കിന്റെ അനുമതികൂടി ലഭ്യമായാൽ കേരള ബാങ്ക് രൂപീകരണ നടപടികൾ ആരംഭിക്കും

ബ്ലോക്കിന് കീഴിൽ നേരത്തെ പ്രവർത്തിച്ചു വന്നിരുന്ന വനിതാ കേന്ദ്രങ്ങളാണ് ഷീ ലോഡ്ജുകളായി മാറുന്നത് വനിതകൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിന് മെച്ചപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾകൂടി ഒരുക്കിയാണ് രണ്ട് ഷീ ലോഡ്ജുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ടൂറിസത്തിനൊപ്പം ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്താൻ എത്തുന്നവർക്കും ഷീ ലോഡ്ജുകളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു റാണിപുരം കാസർകോട് ജില്ലയിലെ റാണിപുരം വിനോദ സഞ്ചാര കേന്ദ്രത്തിൽ പുൽമേടിന് തീപിടിച്ചു

വാച്ചർമാരും വനസംരക്ഷണ സമിതി പ്രവർത്തകരുർ ച്ചേർന്ന് തീയണച്ചു പാർക്ക് ഉദ്ഘാടനം വയനാട് മാനന്തവാടിയിൽ പഴശി പാർക്ക് രണ്ടാംഘട്ട സൌന്ദര്യവൽക്കരണ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും

മരണം തിരക്കഥാകൃത്തും ചലചിത്ര നടനുമായ രഞ്ജി പണിക്കരുടെ ഭാര്യ അനിത മറിയം തോമസ് അന്തരിച്ചു

പോലീസ് അന്വേഷണം ആരംഭിച്ചു

മെയ്മാസത്തിൽ ലണ്ടനിൽ നടക്കുന്ന ലോകകപ്പ് മത്സരത്തിന്റെ മുന്നൊരുക്കമാണ് ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങൾ

പാർട്ടി അധ്യക്ഷൻ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവ്വഹിച്ചു സമ്മേളനം വൈകിട്ട് സമാപിക്കും ലഹരി മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരിവസ്തുക്കളുമായി തൃശൂരിൽ യൂവാവ് അറസ്റ്റിൽ ചാവക്കാട് പാലയൂർ സ്വദേശി നഹീമിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റു ചെയ്തത്

ഉത്സവത്തിന് മുന്നോടിയായി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നാളെ വൈകിട്ട് ശുദ്ധി ക്രിയകളും സന്നിധാനത്ത് നടക്കും